പ്രഖ്യാപിച്ചു

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി

എസ് എൽ വി മാർക്ക് ത്രീയുടെ സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതായി ഐ എസ് ആർ

സെപ്തംബർ ഏഴിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിക്ഷേപണം ക്രമീകരിച്ചിട്ടുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രി എച്ച്

കുമാരസ്വാമി അവതരിപ്പിച്ച വിശ്വാസ പ്രമേയത്തിൻമേൽ ചർച്ച തുടരും

കോൺഗ്രസും ജെ ഡി എസും ഇന്നലെ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ നടത്തി വിമത എം എൽ

ജെ

ജെ പി ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും തങ്ങളുടെ എം എൽ എ മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേയ്ക്ക് മാറ്റിയിരിക്കുകയാണ് വിമത എം എൽ

സ്റ്റേഷൻ മന്ദിരത്തിന്റെ സംരക്ഷണത്തിനായി മുംബൈ ഡിവിഷനും കേന്ദ്ര റെയിൽവേയും ഗവൺമെന്റേതര സംഘടനകളും സംയുക്തമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പൈതൃകസംരക്ഷണ കമ്മിറ്റിയുടെയും പൈതൃക സംരക്ഷണ നിയമത്തിന്റെയും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ന റെയിൽവേ അധികൃതർ അറിയിച്ചു പൈതൃക സംരക്ഷണത്തിന്റെ ഭാഗമായി വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും റെയിൽവേ അറിയിച്ചു

പ്രധാനമന്ത്രിയായി രണ്ടാംതവണയും അധികാരത്തിൽ എത്തിയശേഷം നടത്തുന്ന പരിപാടിയുടെ രണ്ടാം ലക്കമാണ് ഇത്

സാമൂഹ്യ സേവനത്തിന്റെ മികച്ച ദൃഷ്ടാന്തമാണ് യോഗയെന്ന ശ്രീ നരേന്ദ്ര മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചിരുന്നു

രാജ സി

യുടെക് പൂതിയ ദേശീയ ജനറൽ സെക്രട്ടറി

നിലവിൽ രാജ്യസഭാ എം

എല്ലാ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ചുമതലയേറ്റെടുത്തശേഷം ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

ഗവൺമെന്റിന്റെ നിക്ഷേപ സൌഹൃദ നയവും നടപടികളുമാണ് ഇതിന് കാരണമെന്ന് വാണിജ്യമന്ത്രാലയം അറിയിച്ചു നിക്ഷേപ നയം ഇനിയും കൂടുതൽ സുതാര്യമാക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി

കാൺപൂരിലും ഫത്തേപ്പൂരിലുമായി ഏഴുപേർക്കും ഝാൻസിയിൽ അഞ്ചു പേർക്കും ജീവഹാനി ഉണ്ടായി

രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സാ സഹായം ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ഒരു റിപ്പോർട്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇടുക്കിയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സർവ്വകലാശാലാ പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് ജില്ലാകളക്ടർ അറിയിച്ചു

ഇന്ന് മുതൽ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഐഡന്റിറ്റി കാർഡ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കോളേജിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂവെന്ന് പ്രിൻസിപ്പൽ ഡോ

വിരാട്കോഹ്ലി നയിക്കുന്ന ടീമിൽ ധോണി ഉൾപ്പെട്ടിട്ടില്ല രോഹിത് ശർമ്മ ശിഖർ ധവാൻ ലോകേഷ് രാഹുൽ ശ്രയേസ് അയ്യർ മനീഷ് പാണ്ഡേ ഋഷഭ് പന്ത് ക്രുനാൽ പാണ്ഡൃ രവീന്ദ്ര ജഡേജ രാഹുൽ ചാഹർ ഭുവനേശ്വർ കുമാർ ഖലീൽ അഹമ്മദ് നവദീപ് സൈനി എന്നിവരാണ് ഏകദിന ട്വന്റി അജിങ്കൃ രഹാനേ ആർ അശ്ചിൻ ഇഷാന്ത് ശർമ്മ മുഹമ്മദ് ഷമി ജസ്പ്രീത് ബുംറ എന്നിവർ ടെസ്റ്റ് ടീമിലെത്തി രണ്ടു ടെസ്റ്റുകളായിരിക്കും ഇന്ത്യ വെസ്റ്റിൻഡീസിൽ കളിക്കുക

ഏതാനും ദിവസങ്ങൾക്കിടെ ഹിമ കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിവിധ മത്സരങ്ങളിലായി രാജ്യത്തിനായി അഞ്ച് സ്വർണ്ണമാണ് ഹിമ നേടിയതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

സിറിയയിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് പിന്തുണയുള്ള മനുഷ്യാവകാശ സംഘടനയാണ് ആക്രമണ വിവരം അറിയിച്ചത്

സുരക്ഷാ കാരണങ്ങളാലാണ് തീരുമാനം ഒരാഴ്ചത്തേയ്ക്കാണ് സർവ്വീസ് റദ്ദാക്കിയത്

ഗൾഫ് മേഖലയിലെ കപ്പൽ യാത്രയുടെ സുരക്ഷിതത്വമാണ് പ്രധാന ചർച്ചാ വിഷയം ഫ്രഞ്ച് ജർമ്മൻ മന്ത്രിമാരുമായി ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജറേമി ഹണ്ട് ഇന്നലെ സുരക്ഷ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി അതിനിടെ ഇറാന്റെ നടപടിക്കെതിരെ ഉചിത പ്രതികരണം ഉണ്ടാവുമെന്ന് ബ്രിട്ടീഷ് ജൂനിയർ പ്രതിരോധ മന്ത്രി തോബിയാസ് എൽവുഡ് അറിയിച്ചു